രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് ആരംഭിക്കും

കോട്ടൂർ കാപ്പൂകാട് ആന പുനരധിവാസകേന്ദ്രം അന്തർദ്ദേശീയ നിലവാരത്തിലേയ്ക്ക് ഉയർത്തുന്ന പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവ്വഹിച്ചു

ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാനോട് ലോകകപ്പ് പരാജയപ്പെട്ടു സെമി പ്രതീക്ഷയോടെ ബംഗ്ലാദേശ് ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും

ഫൈനലിൽ കടന്നു

ജെ പി യുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റ് ജെ

നഡ്ഡ രാജ്യസഭയിലും കേന്ദ്രമന്ത്രി പ്രതാപ് ചന്ദ്ര സാരാംഗി ലോക്സഭയിലും ചർച്ചയ്ക്ക് തുടക്കം കുറിക്കും

ആധാറും അനുബന്ധ നിയമങ്ങളും ഭേദഗതി ബില്ലും ഇന്ന് ചർച്ചയ്ക്കെടുക്കാനാണ് സാധ്യത

ജസോൾ ഗ്രാമത്തിൽ മതപരമായ പരിപാടിയ്ക്കിടെയാണ് ആളുകളി രുന്ന ടെന്റ് തകർന്നു വീണത് സംസ്ഥാന ഗവൺമെന്റ് മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം വീതവും പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപ വീതവും സഹായധനം പ്രഖ്യാപിച്ചു അപകടം ദൌർഭാഗ്യകര മായിപ്പോയി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു

എയർ ചീഫ് മാർഷൽ ബി

ധനോവ ചടങ്ങിൽ മുഖ്യ അതിഥിയാകും

വിജയി കൾക്കുള്ള ക്യാഷ് അവാർഡുകൾ അവരവരുടെ അക്കൌണ്ടുകളിൽ ലഭ്യമാക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അിറയിച്ചു മൂവായിരത്തി ലധികം വരുന്ന കായിക പ്രതിഭകളെ ഒറ്റ ദിവസത്തെ ചടങ്ങിൽ ആദരി ക്കുക പ്രായോഗികമല്ല എന്നത് കണക്കിലെടുത്താണ് ചടങ്ങ് വേണ്ടെ ന്നുവച്ചതെന്ന് ഹരിയാന സ്പോർട്സ് മന്ത്രി അനിൽ വിജ് പറഞ്ഞു

ബർദ്വാൻ ജില്ലയിലെ ബങ്കൂർ പുരുട്ട എന്നീ മേഖലകളിലാണ് രൂക്ഷമായ വരൾച്ച അനുഭവപ്പെടു ന്നത്

ജില്ലയിലെ ബുദാൽ പ്രദേശത്തെ കേവാൾ ഗ്രാമത്തിലാണ് അപകടം നടന്നത് രജൌരിയിൽ നിന്ന് ചമ്പാനയിലേക്ക് പോവുകയായിരുന്ന ടെമ്പോ ട്രാവലർ വഴിമധ്യേയുള്ള ഗട്ടറിൽ വീണാണ് അപകടം ഉണ്ടാ യത്

കോട്ടൂർ കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രം അന്തർദേശീയ നിലവാരത്തിലേക്കുയർത്തുന്ന പദ്ധതിയുടെ ആദ്യഘട്ട നിർമാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഒരു റിപ്പോർട്ട്

ആന മ്യൂസിയം സൂപ്പർ സ്പെഷ്യാലിറ്റി സൌകര്യങ്ങളോടുകൂടിയ വെറ്ററിനറി ആശുപത്രി പഠനഗവേഷണ കേന്ദ്രം പാപ്പാൻമാർക്കുള്ള പരിശീലന കേന്ദ്രം വിശാലമായ കൺവെൻഷൻ സെന്റർ ആംഫി തിയേറ്റർ എന്നിവ പദ്ധതിയുടെ ഭാഗമാണ് നാട്ടാനകളുടേതടക്കം ജഡങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള സംവിധാനവും ശ്മശാനവും പദ്ധതിയുടെ ഭാഗമായി നിർമിക്കുന്നുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്യത്ത് ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമം പരാജയപ്പെടുത്തിയെന്ന് സംഭവത്തിനു പിന്നാലെ എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അറിയിച്ചു

ബിജുവിന്റെ വെയിൽ മര ങ്ങൾക്ക്

മേളയിൽ ഏറ്റവും മികച്ച സിനിമയ്ക്കു നൽകുന്ന സുവർണ്ണ ചഷകം ഇറാനിയൻ സിനിമയായ കാസിൽ ഓഫ് ഡ്രീംസിന് ലഭിച്ചു

മാണിയുമായി യു ഡി

ജോസഫ് വിഭാഗവുമായുര്യു ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കോട്ടയത്ത് അറിയിച്ചു

സുരക്ഷാ പരിശോധനയ്ക്ക് കൂടുതൽ സമയമെടുക്കുന്നതിനാൽ വൻ തിരക്ക് അനുഭവപ്പെടുന്നതിനാലാണ് ഈ ക്രമീകരണം ഏർപ്പെടു ത്തിയത്

അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിൽ അമ്പയറോട് കർക്കശമായി അപ്പീൽ ചെയ്തതിന്റെ പേരിലാണ് പിഴയിട്ടത്

സി സിയുടെ പെരുമാറ്റചട്ടപ്രകാരമാണ് നടപടി

എച്ച് സീരീസ് ടൂർണമെന്റിന്റെ ഇന്ത്യൻ വനിതാ ട്രീമിന്റു കിരീടം നിർണായക മത്സരത്തിൽ ആതിഥേയരും നിലീപ്പില്പ് ചാമ്പ്യൻമാരുമായ ജപ്പാനെ ഇന്ത്യ ഒന്നിനെതിരെ മൂന്ന് ഗ്ൾോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്

് നേരത്തെ പുരുഷ വിഭാഗത്തിലും ഇന്ത്യ കിരീടം നേടി

അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടണ് ജറുസലേമിൽ നൽകിയ സ്വീകരണത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് പലസ്തീൻ ഈ നീക്കം നേരത്തെ തള്ളി ഇസ്രയേലിന്റെ ജറുസലേമിനെ തലസ്ഥാനമായി അമേരിക്ക അംഗീകരിച്ചത് പക്ഷപാതപരമായി എന്ന് ഉദ്ധരിച്ചാണ് പലസ്തീൻ ഇത് അംഗീകരിക്കാത്തത്

രാജ്യത്ത് മികച്ചു ഭരണം നടപ്പാക്കാൻ ഇത് അത്യാവശ്യമാണെന്നും അദ്ദേഹം കൊളംബോയിൽ പറഞ്ഞു